സ്ഥിരീകരിച്ചു

കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മുഖ്യമ്പ്രി പിണറായി വിജയൻ കിടക്കകളുടെ എണ്ണം പ്ർദ്ധിപ്പിക്കാനും നിർദ്ദേശം കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ന് ഏർപ്പെടുത്തിയ വാരാന്തൃ നിയന്ത്രണം ശക്തം അവശൃ സർവീസുകൾ മാത്രം പ്രവർത്തിക്കുന്നു

വാക്സിനുമുള്ള കസ്റ്റംസ് തീരുവയും ആരോഗ്യസെസും മൂന്ന് മാസത്തേയ്ക്ക് ഒഴിവാക്കി

പോരാട്ടം

ഒരു പ്രദേശത്തേയും ഒഴിവാക്കിയിട്ടില്ല

ആദ്യതരംഗത്തെ ഷിട്ടിച്ചുകെട്ടാൻ ഉപയോഗിച്ച അടിസ്ഥാന തത്വങ്ങളിലേക്ക് നാം തിരിച്ചു ്പ്യേകണം നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് ഗുരുതരമായ് സ്ഥിതിയിലേക്ക് എത്തിയേക്കാം ജാഗ്രത കൈവിടാതിരിക്കുന്നതാണ്ട് അ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കോവിഡ് ചികിത്സിൽ പ്രത്യേക പ്രാവീണ്യം നേടിയ ഡോക്ടർമാരെ ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കാൻ എല്ലാ സ്വകാര്യ ആശുപത്രികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പെയിൻ ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

മുഖ്യമന്ത്രി സ്വകാര്യ ആശുപത്രി മാനേജുമെന്റുകളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ആവശൃം മുന്നോട്ട് വെച്ചത്

കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം വർധിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗം വിളിച്ച് സഹകരണം തേടിയത്

പരമാവധി ഐ

ഒഴിവുള്ള കിടക്കകളുടെ എണ്ണം ദൈനംദിനം സർക്കാരിനെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

കോവിഡ് പ്രതിരോധത്തിനായി ഗ്രാമപഞ്ചായത്തുതല വാർഡ് തല കമ്മിറ്റികൾ അടിയന്തരമായി പുനസംഘട്ടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

ഇന്നും നാളെയും കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഉള്ളത് പോലീസ് നിയന്ത്രണങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും അനുഭാവ പൂർണമായ പ്രതികരണമാണ് ഉണ്ടായത് അവശ് വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് ഹോട്ടലുകളിൽ പാഴ്സലിനു മാത്രമാണ് അനുമതി

ഓട്ടോ ടാക്സി സർവീസുകളും ചെറിയ തോതിൽ നിരത്തിലിറങ്ങി മതിയായ രേഖകൾ ഇല്ലാതെ യാത്ര ചെയ്തവർക്കെതിരെ പിഴയും കേസും ചുമത്തിയിട്ടുണ്ട്

ജഗന്നിവാസൻ

എല്ലാ വാക്സിനേഷൻ സെൻററുകളിലും അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്

പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്